കോവിഡ് പ്രതിരോധ പ്രവർത്തുനങ്ങളിൽ ഇന്ത്യക്ക് ഫ്രാൻസിന്റെ അഭിനന്ദനം

ഡിജിറ്റൽ ഇന്ത്യ പരിപാടിയെ ്ൽനു്മോദിച്ച് കോമൺവെൽത്ത്

എന്നിവിടങ്ങളിൽ റെഡ് അലർട്ട്

സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിന്നും ആഭ്യന്തര സർവീസ് നടത്തും

ഇത് പ്രകാരം രാജ്യത്തെത്തിയാൽ ഇവർ രണ്ടാഴ്ചത്തെ നിർബന്ധിത ക്വാറന്റീനിൽ കഴിയേണ്ടതാണ്

ഉഡാൻ പദ്ധതി പ്രകാരം കൂടുതൽ സർവ്വീസുകൾ നടത്തും ആഭ്യന്തര വിമാന സർവീസുകൾക്ക് പുറമെയാണ് ഉഡാൻ സർവീസുകളും നടത്തുന്നത്

ഇന്ന് സാൻഫ്രാൻസിസ്കോയിൽ നിന്ന് കൊച്ചിയിലേക്കും മെൽബണിൽ നിന്ന് കൊച്ചിയിലേയ്ക്കും മലയാളി യാത്രക്കാരുമായി ഓരോ വിമാനങ്ങൾ വീതം എത്തും വിശദാംശങ്ങളുമായി സിനു

എ ഇ യിൽ നിന്ന് കൂടുതൽ വിമാനങ്ങൾ സർവീസ് നടത്തുന്നതും പരിഗണിക്കുന്നുണ്ട്

രാജ്യത്തെ ട്രെയിൻ യാത്രക്കാർ പാലിക്കേണ്ട മാർഗനിർദേശങ്ങളും കേന്ദ്രം പുറത്തിറക്കി അടുത്ത മാസം ഒന്നു മുതൽ സർവീസുകൾ റെയിൽവേ ആരംഭിക്കാനിരിക്കെയാണ് യാത്രാനിർദേശം പുറത്തുവന്നത്

് ്കോമൺവെൽത്തിലെ വികസ്വര രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ വ്യിജിയം പ്രതീക്ഷ നൽകുന്നതാണെന്ന് സംഘടനയുടെ സെക്രട്ടറി ജനുറൽ പട്രീഷ്യ സ്കോട്ട്ലന്റ് പറഞ്ഞു

കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയുടേത് നിർണായക പങ്കെന്ന് ഫ്രഞ്ച് അംബാസഡർ ഇമ്മനുവൽ ലെനൈൻ പറഞ്ഞു കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയും ഫ്രാൻസും പുലർത്തുന്നത് ഈ നൂറ്റാണ്ടിന്റെ മാതൃകാപരമായ അന്താരാഷ്ട്രബന്ധമാണ് തീവ്രപരിചരണ വിഭാഗത്തിലുള്ളവർക്കാവശ്യമായ മരുന്നുകൾ ഇന്ത്യയിൽനിന്നും കയറ്റി അയയ്ക്കാൻ അനുമതി നൽകിയതിൽ ഏറെ നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഇതിനെത്തുടർന്നു വെഞ്ഞാറമൂട് പൊലീസ് സ്റ്റേഷനിലെ സി

പരീക്ഷ എഴുത്താൻ തടസമില്ല

വിശദാംശങ്ങളുമായി ട്രിച്ചിയിൽ നിന്നും ആകാശവാണി വാർത്താ വിഭാഗം മേധാവി ഡോ

പരമേശ്വരൻ

വരും ദിവസങ്ങളിൽ വിദർഭ മധ്യപ്രദേശ് ഗുജറാത്ത് മേഖലകളിൽ ഉഷ്ണതരംഗം രൂക്ഷമായേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത രണ്ട് ദിവസത്തേക്ക് ഡൽഹി പഞ്ചാബ് ഹരിയാണ ഛഢിഗഢ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ടും കിഴക്കൻ ഉത്തർപ്രദേശിൽ ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്